ടോഡി ബോർഡ് യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻറെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ തിരുവനന്തപൂരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരുലക്ഷത്തോളം പേർ ഈ വൃവസായവുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നുണ്ടെന്നും തൊഴിൽരംഗത്തെ അനിശ്ചിതത്വം ഈ രംഗത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പരിഹരിക്കുന്നതിനും കള്ളുവൃവസായം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു പ്രായാധികൃം മൂലം വിരമിച്ച ചെത്ത് തൊഴിലാളികളിൽ ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സേവനകാലമുള്ളവർക്ക് പാരിതോഷികം മന്ത്രി ഡോക്ടർ ടി

രുവെട്ടുമ നഷ്ടപ്പെടലുകളിൽ വ്യാകുലപ്പെടാതെ പത്രപ്രവർത്തനം നടത്തിയ വൃക്തിയായിരുന്നു എം എസ് മണിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച എം എസ് മണി അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഭാഷയും മറ്റൊരു ഭാഷയുടെ മുകളിലല്ലെന്നും എല്ലാ ഭാഷകളും വിശിഷ്ടമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു

ചടങ്ങിൽ ഹിന്ദി ഭാഷാ പ്രോത്സാഹനത്തിന് കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് പുരസ ്കാരങ്ങളും ഗവർണർ വിതരണം ചെയ്തു

മൃതദേഹങ്ങൾ ്രാത്രിയോടെ സ്വദേശങ്ങളിലെത്തിച്ചു

എസ് ആർ

സി എറണാകുളം ഡിപ്പോയിൽ പൊതുദർശനത്തിന് വെച്ച ബസ് ഡ്രൈവർ വി സി ഗിരീഷ് കണ്ടക്ടർ വി ആർ ബൈജു എന്നിവരുടെ മൃതദേഹങ്ങളിൽ നിരവധിപേർ അന്ത്യോപചാരമർപ്പിച്ചു മന്ത്രിമാരായ സി രവീന്ദ്രനാഥ് എ സി മൊയ്തീൻ എന്നിവർ അപകടത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ചു

അറസ്റ്റിലായ കണ്ടെയ്നർ ലോറി ഡ്രൈവർ ഒറ്റപ്പാലം സ്വദേശി ഹേമരാജനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മനപൂർവ്വമല്ലാത്ത നരഹത്യക്കും അശ്രദ്ധമായി വാഹനമോടിച്ചതിനുമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്

പിയുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെൻറ് സ്കാഡ് രൂപീകരിക്കാൻ ഡി

പി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി ജില്ല മുഴുവൻ അധികാരപരിധിയുള്ള സ്കാഡ് നാലുദിവസത്തിനകം രൂപീകരിക്കാനാണ് നിർദ്ദേശം അവിനാശി ബസ് ദുരന്തത്തിൻറെ പശ്ചാത്തലത്തിലാണിത് ചീറ്റ പട്രോളിംഗ് സംഘം നിലവിലുള്ള സ്ഥലങ്ങളിൽ അവയുടെ സേവനം ഇതിനായി ഉപയോഗപ്പെടുത്തും അമിതവേഗം മദ്യപിച്ച് വാഹനമോടിക്കൽ അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് എന്നിവ കണ്ടെത്തി തടയുന്നതിന് നിതാന്ത ജാഗ്രത പൂലർത്താൻ ഹൈവേ ഖ്പാലീസിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്

വ്രതാനുഷ്ഠാനത്തോട്ടെ ഉപവാസവും ശിവപൂജയും പഞ്ചാക്ഷരീ മന്ത്രവുമാണ് ശിവരാത്രിയുടെ മാഹാത്മൃം വർദ്ധിപ്പിക്കുന്നത്

ശിവരാത്രിയിൽ ഉറക്കമൊഴിച്ച് ശിവകീർത്തന ആലാപനവും ശിവക്ഷേത്ര സന്നിധിയിൽ കിട്ടുന്ന തീർത്ഥം മാത്രം സേവിച്ച് ഉപവാസവും ശിവസ്തോത്രവും ശിവ സഹസ്രനാമവും ചൊല്ലി മഹേശ്വരനെ സ്തുതിക്കുന്നു അതുവഴി മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം

വിപുലമായ ഒരുക്കങ്ങളാണ് മണപ്പുറത്ത് പൂർത്തിയായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ കൊച്ചി ലേഖകൻ എൻ

കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ന ലയനത്തെച്ചൊല്ലി തർക്കത്തിലായ ഇരു നേതാക്കളും ഇതോടെ വഴി പിരിയുമെന്നാണ് സൂചന ലയന തീരുമാനം ഒന്നിച്ചെടുത്ത ശേഷം അനൂപ് ജേക്കബ് പിന്തിരിയുകയായിരുന്നുവെന്ന് ജോണി നെല്ലൂർ കോട്ടയത്ത് കുറ്റപ്പെടുത്തി

ഇവരിൽ ഏഴുപേർ മാത്രമാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്

രുമ്പ്പെട്ടിര ന്യൂസിലാൻറിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മോശം തുടക്കം

ടോസ് നേടിയ ന്യൂസിലാൻറ് ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു രുമ്പ്പെട്ടിര വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് ഓസ്ട്രേലിയയിൽ ഇന്ന് തുടക്കമാകും സിഡ്നിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരായ ഓസ്ട്രേലിയയെ നേരിടും

ഇന്ത്യ ഉൾപ്പെടെ പത്ത് ടീമുകളാണ് വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്നത്

എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സിക്ക് ജയം ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളിനാണ് ഹൈദരാബാദ് തോൽപ്പിച്ചത് ഇന്ന് മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ് സിയെ നേരിടും

സി ഇന്ന് മണിപ്പൂർ ക്ലബ് നെറോക്കയെ നേരിടും ഇംഫാലിൽ ഉച്ചയ്ക്ക് രണ്ടിനാണ് മത്സരം

കോഴിക്കോട് മെഡിക്കൽ കോളജിനാണ് രണ്ടാംസ്ഥാനം കോട്ടക്കൽ ആയുർവേദ കോളജ് മൂന്നാംസ്ഥാനം നേടി

പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ചർച്ച നടത്തും രാവിലെ വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലായിരിക്കും കൂടിക്കാഴ്ച ഗവൺമെൻറ് മേഖലയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെൻറർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു

രുവെട്ടിരു പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ പരിപാടികൾ താഴേ ത്തട്ടിൽ എത്തണമെന്നും ഇതിനായി വാർഡ് തല ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി എ

പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമായി ആരോഗ്യവകുപ്പ് ആർദ്രം മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഒരു വർഷം മുഴുവൻ നടപ്പിലാക്കുന്ന ആരോഗൃജാഗ്രതാ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം മുളങ്കുന്നത്തുകാവ് കിലയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി

സൌരോർജ്ജത്തിലൂടെ വൈദ്യതിയുടെ കാര്യത്തിൽ സംസ്ഥാനം സ്ഥയം പര്യാപ്തത കൈവരിക്കുമെന്നും പുരപ്പുറ സോളാർ ഡാമുകളിലെ ഫ്ളോട്ടിങ് സോളാർ പദ്ധതികളിലൂടെ ഇത് സാധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ രണ്ടാഘട്ടത്തിന്റെ തുടർ നടപടി സ്വീകരിച്ചുവരികയാണെന്നും മന്ത്രി അറിയിച്ചു ആലപ്പുഴ കളർകോട് വൈദ്യുതി അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഒരുവർഷത്തിനുള്ളിൽ പത്തുലക്ഷം വീടുകളിൽ പൈപ്പുവഴി കുടിവെള്ളം ലഭ്യമാക്കാനാണ് ഗവൺമെൻറ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു കേരള പുനർ നിർമ്മാണ് പദ്ധതിയുടെ ഭാഗമായി യൂണിസെഫിൻറെ സഹായത്തോടെ സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൌണ്ടേഷനും കേരള റൂറൽ വാട്ടർ സ്റ്റ്പ്പെ ആൻറ് സാനിറ്റേഷൻ ഏജൻസിയും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

രുവെട്ടുമ ഗവൺമെൻറിൻറെ ലഹരിവിരുദ്ധ ബോധവത്കരണ വേദികളിൽ എന്തുകൊണ്ടാണ് മദ്യത്തെക്കുറിച്ച് മൌനം പാലിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ചോദിച്ചു കേരള മദൃ നിരോധന സമിതിയുടെ ദക്ഷിണ മേഖലാ ജാഥ സമാപനം സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ചിത്രരചനയിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സംസ്കാരം ഇന്ന് മാഹിയിൽ നടക്കും രുമ്പ്പെട്ടിര കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അനുബന്ധ ബസ് സർവീസിന് തുടക്കമായി വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ സിയാൽ മാനേജിംഗ് ഡയറക്ടർ വി ജെ കുര്യൻ പവൻദൂത് ബസ് സർവീസ് ഫ്ളാഗ്ഓഫ് ചെയ്തു

ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു രുമ്പ്പെട്ടിരു ആർജ്ജവവും ഒരുമയുമുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയാത്ത ഭൂപ്രശ് നങ്ങളൊന്നും ജില്ലയിലില്ലെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ പറഞ്ഞു

മധുരൈ ഡിവിഷനിൽ പാത നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ ഈ പാസഞ്ചർ ഇന്നുമുതൽ ഭാഗികമായി റദ്ദാക്കുമെന്ന് റെയിൽവെ നേരത്തെ അറിയിച്ചിരുന്നു

എമ്മിലെ അജിതാ ജയരാജൻ ചുമതലയേറ്റു